വാർത്തകൾ വിശദമായി തീരശോഷണം നേരിടുന്നതിന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി തയാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതിനായി വലിയ പദ്ധതി നടപ്പാക്കുന്നതിന് ലോകബാങ്കുമായി നടത്തിയിട്ടുണ്ടെങ്കിലും അന്തിമ ചർച്ച തീരുമാനത്തിന് കാത്തിരിക്കാതെ കിഫ്ബി മുഖേന പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു തീരശോഷണം രാജ്യാതിർത്തിയുടെ കൂടി പ്രശ്നമായതിനാൽ ഇക്കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്

തിരുവനന്തപുരത്ത് വിവിധ സാമൂഹ്യ സംഘടനാ നേതാക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വിഭാഗത്തിന്റേയും നിലവിലെ സംവരണതോതിൽ കുറവ് വരരുതെന്ന ശക്തമായ നിലപാടാണ് ഗവൺമെന്റിനുള്ളതെന്നും ഇതിന്റെ പേരിൽ ആശങ്കപടർത്താൻ ശ്രമം നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ വിഷയത്തിൽ സംവരണവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഗവൺമെന്റ് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു അറബി ഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളേയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഗവൺമെന്റിന്റേതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു രുര അയൽ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ ആദ്യം നൽകുകയെന്ന ഇന്ത്യയുടെ നയത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിനും ഭൂട്ടാനും മാലദ്വീപിനും വാക്സിനുകളെത്തിക്കും

സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച കോവി ഷീൽഡ് വാക്സിൻ സമ്മാനമായി ഇന്ത്യ ആദ്യം നൽകുന്ന രാജ്യങ്ങളാണ് ഭൂട്ടാനും മാലദ്വീപും ഇതിനുപുറമെ മൂന്ന് ലക്ഷം കോവി ഷീൽഡ് വാക്സിൻ വാണിജ്യ നിരക്കിൽ മാലദ്വീപ് വാങ്ങും

ഇന്ന് തിരുവനന്തപുരം എറണാകുളം വിമാനത്താവളങ്ങളിൽ വാക്സിനുകൾ എത്തുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

രുര ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച ലക്ഷദ്വീപിലേക്ക് കേന്ദ്രം വിദഗ്ധ സംഘത്തെ അയച്ചു

രുമ കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി ലക്ഷദ്വീപുകൾക്കിടയിൽ കപ്പൽ യാത്രാ സർവ്വീസുകൾ നിർത്തിവെച്ചു കവരത്തിയിൽ രണ്ട് പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു രുമ പുതിയ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റും കർഷക സംഘടനാ നേതാക്കളും തമ്മിൽ ഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും ഇന്നലെ നടത്താനിരുന്ന പത്താംവട്ട ചർച്ച ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയമിച്ച സമിതിയുടെ ആദ്യ യോഗം ന്യൂ ഡൽഹിയിൽ ചേർന്നു കർഷകർ കർഷക സംഘടനകൾ കർഷക യൂണിയനുകൾ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം രണ്ട് മാസത്തിനകം നിർദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പ്രവർത്തന രൂപരേഖ യോഗം തയ്യാറാക്കി രംഭ മൊബൈൽ ആപ്പ് വഴി വായ്പ നൽകി നടത്തുന്ന തട്ടിപ്പ് സംബന്ധിച്ച് വിവിധ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പ്രത്യേക സംഘത്തിന് രൂപം നൽകി

തട്ടിപ്പ് സംഘത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും സഹായം ലഭിക്കുന്നുണ്ടെന്ന് സംശയമുള്ളതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പൊലീസ് സിബിഐ ഇന്റർപോൾ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും അന്വേഷണം രുര വാട്സ്ആപ്പിന്റെ സ്വകാര്യ നയത്തിലെ പുതിയ മാറ്റങ്ങൾ ഏകപക്ഷീയമാണെന്നും അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര ഐ ടി

രാജ്യത്തെ പൌരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പുതിയ നയം ആശങ്കയുളവാക്കുന്നതാണെന്ന് മന്ത്രാലയം വാട്സ്ആപ്പ് സി

ഒ ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി

എന്നാൽ മുൻ പ്രസിഡന്റുമാരായ ബറാക്ക് ഒബാമ ജോർജ്ജ് ഡബ്ല്യൂ

വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയായ കമലാ ഹാരിസിന് തമിഴ്നാട്ടിൽ കുടുംബവേരുകളുണ്ട് രദര ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിഥികളായി പട്ടിക വർഗ്ഗ വിഭാഗത്തിൽ നിന്നും കണ്ണൂർ തില്ലങ്കേരി വള്ളിയാട് കോളനിയിലെ അജിത് രമ്യ ദമ്പതികൾ പങ്കെടുക്കും

രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച്ച നടത്താനും പരമ്പാരാഗത കലാപരിപാടികൾ അവതരിപ്പിക്കാനും ഇവർക്ക് അവസരം ലഭിക്കും രും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗലുരു എഫ്

രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം മഡ്ഗാവിൽ ഇന്നലെ ഹൈദരബാദ് എഫ് സി ഒഡീഷ എഫ്

ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ും ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു

അടുത്ത മാസം അഞ്ചിനാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത്

ഉച്ചകഴിഞ്ഞ് രണ്ടിന് കൊൽക്കത്തയിലെ മോഹൻബഗാൻ ഗ്രൌണ്ടിലാണ് മത്സരം രും ശബരിമല തീർത്ഥാടന ശുചീകരണ പദ്ധതിയായ പുണ്യം പൂങ്കാവനത്തിന്റെ സംസ്ഥാന ദിനാചരണം ഇന്ന് എരുമേലിയിൽ നടക്കും പദ്ധതി പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ രാവിലെ ഉദ്ഘാടനം ചെയ്യും രുമ പ്രസിദ്ധമായ അർത്തുങ്കൽ പെരുന്നാൾ ഇന്ന് ചേർത്തല താലൂക്കിൽ ഇന്ന് പ്രാദേശിക അവധി നൽകി രംഭ കോവിഡ് പ്രതിസന്ധിയിൽ ഏകാന്തതയും മാനസിക സംഘർഷങ്ങളുമനുഭവിക്കുന്ന കുട്ടികൾക്കായി കോഴിക്കോട് സമഗ്ര ശിക്ഷാ അഭിയാന്റെ നാട്ടരങ്ങ് ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ടി

കുട്ടികളിലെ സ്വതസിദ്ധമായ വാസനകൾ മനസ്സിലാക്കി അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ പഠനത്തോടൊപ്പം വികസിപ്പിച്ചെടുക്കുന്നതിന് നാട്ടരങ്ങ് സഹായകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു രും കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് മേൽനോട്ട തന്ത്ര രൂപീകരണ സമിതിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അംഗീകാരം മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഡോ ശശി തരൂർ കെ മുരളീധരൻ കെ

രും സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പൂർണമായും ഭിന്നശേഷി സൌഹൃദമാക്കുന്ന പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനതല ശിൽപശാലയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തന പദ്ധതികൾ ആവിഷ്ക്കരിക്കുന്നത്